പ്രസംഗം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ പ്രത്യേക സമിതി രൂപീകരിച്ചിരുന്നു പ്രധാനമന്ത്രി ഔദ്യോഗിക മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുകയോ പെരുമാറ്റച്ചട്ടത്തിന്റെ വ്യവസ്ഥകൾ ലംഘിക്കു കയോ ചെയ്തിട്ടില്ലെന്ന് സമിതി റിപ്പോർട്ട് നൽകി ആകാശവാണിയും ദൂര ദർശനും വാർത്താ ഏജൻസി നൽകിയ വിവരങ്ങൾ ഉപയോഗിക്കുക മാത്ര മാണ് ഉണ്ടായതെന്ന് സമിതിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രക്ഷേപണത്തിൽ പ്പെരുമാറ്റച്ചട്ട ലംഘനമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്

ഹിന്ദി ദിനപത്രമായ അമർ ഉജാലയ്ക്ക് നൽകിയ അഭിമുഖ ത്തിലാണ് രാഹുൽ ഇക്കാര്യം അറിയിച്ചത് വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യ ത്തിൽ തീരുമാനം വൈകില്ലെന്നും രാഹുൽ വൃക്തമാക്കി കോൺഗ്രസ് ഇന്നലെ പുറത്തിറക്കിയ പതിനെട്ടാമത്തെ പട്ടികയിലും വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല അതേസമയം വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നത് ശരിയല്ലെങ്കിലും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ചർച്ച നട ത്തിയിട്ടില്ലെന്ന് സി

ഐ അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജ ന്യൂഡൽഹി യിൽ പറഞ്ഞു

കോഴിക്കോട്ട് യു ഡി എഫിലെ എം കെ രാഘവനും എൽ

എഫിലെ എ പ്രദീപ്കുമാറും ഇന്ന് രാവിലെ പത്രിക നൽകും വടകയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജൻ എറണാ കുളത്തെ എൽ

എഫ് സ്ഥാനാർത്ഥി പി രാജീവ് ചാലക്കുടിയിലെ ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റ് പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ എന്നിവർ ഇന്ന് പത്രിക നൽകുന്ന പ്രമുഖരിൽ ഉൾപ്പെടുന്നു കണ്ണൂ രിൽ ഇടത് സ്ഥാനാർത്ഥി പി കെ ശ്രീമതിയും ഇന്ന് പത്രിക നൽകും

ഡി

പി സുനീറും ഇന്നാണ് പത്രിക നൽകുന്നത്

തിരുവനന്തപുരം പത്ത നംതിട്ട മാവേലിക്കര പൊന്നാനി സീറ്റുകളിൽ രണ്ടുപേർ വീതവും ആലപ്പു ഴ കോട്ടയം ഇടുക്കി ചാലക്കുടി മലപ്പുറം കോഴിക്കോട് വയനാട് മണ്ഡ ലങ്ങളിൽ ഓരോരുത്തരും പത്രിക നൽകി

രുടെട്ട്ടറു പെരിയയിലെ ഇരട്ടക്കൊലപാതകം നടന്ന സ്ഥലത്തെത്തിയ രാഹുൽഗാ ന്ധി കൊലപാതകത്തെ തള്ളിപ്പറയാൻ തയ്യാറായത് രാഹുൽഗാന്ധി സീ താറാം യെച്ചൂരി അലിഖിത കൂട്ടുകെട്ടിന്റെ തെളിവാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

കാഞ്ഞങ്ങാട്ട് എൻ

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും യഥാർത്ഥ അവകാശികൾ പൂർവ്വികരായ പോരാളികളാണെന്ന് സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കാഞ്ഞങ്ങാട്ട് പറഞ്ഞു

ഡി എ മുന്നണി രാജ്യത്തിന്റെ നില നിൽപ്പുതന്നെ അപകടപ്പെടുത്തിയിരിക്കുകയാണെന്നും കാനം കുറ്റപ്പെടുത്തി

തുക അപ്പീൽ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് വരുംദിവസങ്ങ ളിലും പരിശോധന തുടരും

എൽ എ പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതി യിൽ അമ്പേഷണ സഹായത്തിന് ഹൈക്കോട്ടതി അമിക്കസ് ക്യൂറിയെ നിയ മിച്ചു

ഹൈബി ഈഡ നെതിരെ സമർപ്പിച്ച പരാതിയിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ആവ ശ്യപ്പെട്ട് യുവതി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു

രാജ്യാന്തര വിപ ണിയിൽനിന്ന് കടപ്പത്രം വഴി പണമായിത്തന്നെ തുക സമാഹരിക്കുന്നതി നാൽ വിനിമയ നിരക്കിലെ വ്യത്യാസം ഫണ്ടിനെ ബാധിക്കില്ല

ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ മൂല്യനിർണയം ബഹിഷ്കരി ക്കുമെന്ന് അറിയിച്ചിരുന്നു ഇതിനെതിരെ ഏതാനും പ്ലസ്ടു വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം മൂല്യനിർണയവു മായി സഹകരിക്കണമെന്നും കൃത്യസമയത്തുതന്നെ ഫലം പ്രസിദ്ധീകരി ക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു

കൊടുംചൂടും വരൾച്ചയും മുൻനിർത്തി അവധിക്കാല ക്ലാസുകൾ പാടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി

ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകളിലും വെക്കേഷൻ ക്ലാസുകൾ നടത്തരുതെന്ന് നിർദ്ദേശമുണ്ട് ഇക്കാര്യങ്ങൾ ഉൾപ്പെ ടുത്തി വിശദമായ സർക്കുലർ ഇന്നിറക്കും സംസ്ഥാന ബാലാവകാശ കമ്മീ ഷനും അവധിക്കാല ക്ലാസുകൾക്കെതിരെ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്

ആഗോളതാപനം നേരിടാനും പരിസ്ഥിതി സംര ക്ഷണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ഇരുനൂ റോളം രാജ്യങ്ങളിൽ ഭൌമദിനം ആചരിക്കുന്നത് രാത്രി എട്ടര മുതൽ ഒമ്പ തര വരെ വിളക്കുകൾ അണച്ച് ഭൂമിക്ക് സാന്ത്വനം പകരും ഇന്ത്യയിലും ഭൌമദിനാചരണം വർഷങ്ങളായി നടത്തിവരുന്നുണ്ട് രദേഷ്ടങ തൊടുപുഴയിൽ ഏഴുവയസ്സുകാർനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി അരുൺ ആനന്ദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി

അരുൺ കൊലപാതകമുൾപ്പെടെ ആറു കേസുകളിൽ മുൻപ് പ്രതിയായിട്ടുണ്ട് ഇളയകുട്ടി കട്ടിലിൽ മൂത്രമൊ ഴിച്ചതിന്റെ പേരിലായിരുന്നു മൂത്തകുട്ടിയെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത് ചവിട്ടി വീഴ്ത്തിയ കുട്ടിയെ എടുത്തെറിയുകയും ഷെൽഫിൽ തലയിടിച്ച് വീണ കുട്ടിയെ വീണ്ടും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തതായി അന്വേഷണ ത്തിൽ പൊലീസിന് ബോധ്യപ്പെട്ടു പുലർച്ചെ രണ്ടുമണിയോടെയായിരുന്നു മർദ്ദനമെന്ന് തൊടുപുഴ ഡി

പി ജോസ് അറിയിച്ചു തട യാൻ ശ്രമിച്ച കുട്ടിയുടെ അമ്മയ്ക്കും മർദ്ദനമേറ്റതായി മൊഴി ലഭിച്ചിട്ടുണ്ട് നന്തൻകോട് സ്വദേശിയായ അരുൺ ബിയർ കുപ്പി കൊണ്ട് സുഹൃത്തിനെ തലയ്ക്കടിച്ച് കൊന്ന കേസിലും പ്രതിയായിരുന്നു

വെന്റിലേ റ്റർ സഹായത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് തലച്ചോറിലേക്ക് രക്തയോട്ടം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്

കരുനാഗപ്പള്ളി അയണിവേലിക്കകത്ത് തെക്ക് തുളസീധരന്റെ മകൾ തുഷാര മരിച്ച കേസിലാണ് ഭർത്താവ് ചന്തുലാലിനെയും അമ്മ ഗീതാലാലിനെയും അറസ്റ്റ് ചെയ്തത് അർപ്പെട്ടറി അടുത്ത രണ്ടുദിവസം കൂടി സംസ്ഥാനത്ത് വയനാട് ഒഴികെ ജില്ലക ളിൽ പകൽ താപനില രണ്ട് മുതൽ മൂന്ന് ഡിഗ്രിവരെ ഉയർന്നേക്കുമെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഇന്നലെ വിവിധ ജില്ലക ളിലായി അറുപതിലേറെ പേർക്ക് സൂര്യാതപവും പൊള്ളലുമേറ്റു

ഇന്നലെയും പാലക്കാട് അഞ്ചുപേർക്ക് സൂര്യാതപത്താൽ പൊള്ളലേറ്റു

കലാശപോരാ ട്ടത്തിൽ ഇന്ത്യ ആതിഥേയരായ ദക്ഷിണ കൊറിയയെ നേരിടും

ഇന്നലെ ദുർബലരായ പോള ണ്ടിനെ ഇന്ത്യ മറുപടിയില്ലാത്ത പത്തുഗോളിന് തകർത്തിരുന്നു ഒരു കളിയും തോൽക്കാതെയാണ് ഇന്ത്യ ഫൈനൽ ബർത്ത് നേടിയത്

എൽ ക്രിക്കറ്റിൽ ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ ഹൈദ രാബാദ് സൺറൈസേഴ്സ് അഞ്ചുവിക്കറ്റിന് തോൽപ്പിച്ചു

ഇന്ന് വൈകീട്ട് നാലിന് മുംബൈ ഇന്ത്യൻസ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെയും രാത്രി എട്ടിന് ഡെൽഹി കൃാപ്പിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും നേരിടും

വി വിജയന്റെ പതിനാലാം ചരമവാർഷിക ദിനമായ ഇന്ന് തപസൃ കലാ സാഹിത്യവേദി എല്ലാ ജില്ലകളിലും ഒ വി വിജയൻ സ്മൃതിസദസ്സ് സംഘടിപ്പി ക്കും

രുടെട്ട്ടറു തൃശൂർ പൂരം പ്രദർശനം മറ്റന്നാൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറി യിച്ചു അന്ന് വൈകീട്ട് മന്ത്രി എ

വിമാനത്താവള സി ഇ ഒ ഉൽപ്പൽ ബറുവ കൊച്ചി യിൽ പുരസ്കാരം ഏറ്റുവാങ്ങി

അർദ്ധരാത്രിയോടെ സൌപർണ്ണികയിൽ ഓക്കുളി ഉത്സവത്തോടെയാണ് ആറാട്ട് ചടങ്ങുകൾ അവസാനിച്ചത് ഇന്ന് പുലർച്ചെ ദേവീ വിഗ്രഹവുമായി തിരിച്ചെഴുന്നള്ളിപ്പ് പൂർത്തിയാകുന്നതോടെ രഥോ ത്സവ ചടങ്ങുകൾ അവസാനിക്കും രുവെട്ടിട്ടുള അഖില കേരള വികലാംഗ ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം ഇന്നും നാളെയും കണ്ണൂരിൽ നടക്കും രാവിലെ പ്രതിനിധി സമ്മേളനം പട്ടാന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും നാളെ രാവിലെ കണ്ണൂർ ജൂബിലി ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും